കേരളമടക്കം സംസ്ഥാനങ്ങളിലെ മഴക്കെടുതി ലോകസഭ ഇന്ന് ചർച്ച ചെയ്യും

സി വേണുഗോപാൽ അടക്കം എം പിമാർ നൽകിയ നോട്ടീസിലാണ് സ്പീക്കർ ചർച്ചയ്ക്ക് അനുമതി നൽകിയത്

കേരളത്തിലെ മഴക്കെടുതി ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും ഗവൺമെന്റ് അടിയന്തര ഇട പെടൽ നടത്തണമെന്നും എം പിമാർ ആവശ്യപ്പെട്ടു രു രു ശ്യ ഇടുക്കിയിലെ ഹൈറേഞ്ച് മേഖലയിൽ ഇന്നലെ വൈകീട്ട് ഉണ്ടായ കനത്ത് മഴയിൽ മലവെള്ള പാച്ചിലിനെ തുടർന്ന് വ്യാപകമായി മണ്ണിടിച്ചി ലുണ്ടായി ആലപ്പുഴ മധുര സംസ്ഥാനപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു

എന്നാൽ പരീക്ഷകൾക്ക് അവധി ബാധകമല്ല ങ്ങ ൽ വെള്ളപ്പൊക്ക ദുരിതം റിപ്പോർട്ട് ചെയ്യാൻ പോയ മാതൃഭൂമി ന്യൂസ് സംഘം സഞ്ചരിച്ച തോണി വൈക്കത്ത് മുണ്ടാറിനടുത്ത് കരിയാറിൽ മറിഞ്ഞ് കാണാതായ ചാനലിന്റെ ഡ്രൈവർ ബിബിൻ ബാബുവിന്റെ മൃത ദേഹം കണ്ടെത്തി രാത്രി ഏഴ് ് മണിയോടെ അഗ്നി രക്ഷാസേന്യുടെ സ്കൂബ ഡൈവിംഗ് സംഘമാണ് മൃതദേഹം കണ്ടെത്തിയത് ചാനലിന്റെ പ്രാദേശിക ലേഖകൻ സജിയുടെ മൃതദേഹം ഇന്നലെ രാവിലെ കണ്ടെ് ത്തിയിരുന്നു വൈകീട്ട് വീട്ടുവളപ്പിൽ സംസ്കരിച്ചു രു ൽ ൽ ശ്വ ൽ ൾ അ ദുരന്തമുഖത്ത് വാർത്താശേഖരണത്തിന് പോയ രണ്ട് പേർ കൃത്യ നിർവ്വഹണത്തിനിടെ മരണമടഞ്ഞത് മനസ്സിനെ ഏറെ വേദനിപ്പിക്കു ന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്പറഞ്ഞു സ്വന്തം തൊഴിലി നോടുള്ള ആത്മാർത്ഥതയും കൂറുമാണ് അവരെ ജീവത്യാഗത്തിലേക്ക് നയി ച്ചതെന്നും ഇവരുടെ കുടുംബത്തിന് അർഹമായ എല്ലാ സഹായവും ഗവൺമെന്റ് ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി ഫെയ്സ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു

ങ്ങ ൽ എറണാകുളം ജില്ലയിൽ മഴയ്ക്ക് ശമനം ആയതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് കൂടുതൽ പേർ വീടുകളിലേക്ക് മടങ്ങി

ഇവിടെ ദുരിതാശ്ചാ സ ക്യാമ്പുകളുടെ പ്രവർത്തനത്തിന് പ്രതിദ്നം രണ്ടു കോടി രൂപയോളം ചെലവാകുന്നുണ്ടെന്ന് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു ദുരിതം തീരും വ രെ ക്യാമ്പുകൾ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഇന്നും കുട്ട നാട് താലൂക്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കലകൾ അവധി പ്രഖ്യാ പിച്ചിട്ടുണ്ട്

കൂടുതൽ വെള്ളക്കെട്ടുള്ള ഇടങ്ങളിലും താഴ്ന്ന പ്രദേശ ങ്ങളിലും ബയോ ടോയ്ലെറ്റുകൾ നൽകും ആവശ്യമായ സ്ഥലങ്ങളിൽ ഫ്ളോട്ടിങ് ടോയ്ലെറ്റുകളും ഏർപ്പെടുത്തും ആലപ്പുഴ ജില്ലയിൽ പ്രവർത്തിക്കുന്ന മുഴു്വൻ ദൂരിതാശ്ചാസ ക്യാമ്പുകളും ആരോഗ്യ പ്രവർത്തകർ സന്ദർശിക്കും

കശുവണ്ടി വ്യവസായത്തിനായി പാക്കേജിന് രൂപം നൽകുന്നുണ്ടെന്ന് സുരേഷ് പ്രഭു കണ്ണന്താനത്തെ അറി യിച്ചു

റബ്ബർ കർഷകരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജിലാ കോൺഗ്രസ്സ് കമ്മറ്റിയുടെ ലോംഗ് മാർച്ച് പത്തനംതിട്ടയിൽ ഉദ്ഘാടന്നം ചെയ്യുകയാ്യിരുന്നു അദ്ദേഹം രു ൽ ശ്ര ൽ ശ്വ ൽ ശ്ര അ ദേശീയ തലത്തിൽ നടക്കുന്ന ചരക്ക് ലോറി സമരം ഒത്തുതീർപ്പാ ക്കാൻ അടിയന്തരമായി കേന്ദ്രം ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ഉപരിതല ഗതാഗതമന്ത്രി നിതിൻ ഗഡ്ഗരിക്ക് ഈ മെയിൽ സന്ദേശമയച്ചു അവശ്യ സാധനങ്ങൾക്ക് മറ്റു സംസ്ഥാന ങ്ങളെ ആശ്രയിക്കുന്ന കേരളത്തെ സമരം സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ങ്ങ ൽ ചരക്ക് ലോറി ഉടമകളുടെ പണിമുടക്ക് അവസാനിപ്പിക്കുന്നതിന് തിരു വനന്തപുരത്ത് ഇന്ന് വൈകീട്ട് മന്ത്രി എ

ശശീന്ദ്രൻ സമരം നടത്തുന്ന് സംഘടനകളുമായി ചർച്ചു നടത്തും സമരം സംസ്ഥാനത്തേക്ക് അവശ്യ വസ്തുക്കൾ എത്തിക്കുന്നത് പ്രതസന്ധിയിലാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി കോഴി ക്കോട് പറഞ്ഞു

അവശ്യ വസ്തുക്കളുടെ ക്ഷാമം നേരിടാൻ കെ എസ് ആർ ടിസിൽ പച്ചക്കറികൾ ഉൾപ്പടെ അത്യാവശ്യ വസ്തുക്കൾ എത്തിക്കുന്നതിനെകു റിച്ച് പരിശോധിക്കാൻ കെ എസ് ആർ ടി സി എംഡിയോട് ആവശ്യപ്പെടു മെന്നും മന്ത്രി അറിയിച്ചു

കേസിൽ പ്രതിക ളായ അഞ്ച്പൊലീസുകാർ കുറ്റക്കാരാണെന്ന് കോടതി ഇന്നലെ കണ്ടെ ത്തിയിരുന്നു ഒന്നാം പ്രതി എ

ഐ ജിത കുമാർ സിവിൽ പൊലീസ് ഓഫീസർ ശ്രീകുമാർ എന്നിവർക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞതായി കോടതി പറഞ്ഞു

തിരുവനന്തപൂരം ആസ്ഥാനമായി ദക്ഷിണമേഖലയും ഏറണാ കുളം ആസ്ഥാനമായി മധ്യമേഖലയും കോഴിക്കോട് ആസ്ഥാനമായി വട ക്കൻ മേഖലയുമായാണ് ്വിഭജിക്കുന്നത് തിരുവന്തപുരം മേഖലയുടെ ഉദ്ഘാടനവും എറണാകുളം കോഴിക്കോട് മേഖലകളുടെ പ്രഖ്യാപനവും മന്ത്രി ഏ

ശശീന്ദ്രൻ ഇന്ന് തിരുവനന്തരത്ത് നിർവ്വഹിക്കും ൾ ൽ ൾ സംസ്ഥാനത്തെ നവോത്ഥാന നായകരുടെ ചിന്തകളും പ്രവർത്തന ങ്ങളും പുതു തലമുറയ്ക്ക് പരിചയപ്പെടുത്തേണ്ടത് ഇന്നിന്റെ ആവശ്യമാ ണെന്ന് മിസോറാം ഗവർണർ കുമ്മന്ം രാജശേഖരൻ അഭിപ്രായപ്പെട്ടു വിദ്യ അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും അത് നൽകു ന്നതിന് യാതൊരു വിധ വിലക്കുകളും പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു കാസർക്കോട് പെരിയയിൽ കേരള കേന്ദ്രസർവ്വകലാശാല മലയാളം വിഭാ ഗത്തിന്റെ കീഴിൽ വിദ്യാധി രാജ ചട്ടമ്പി സ്വാമികളുടെ പേരിൽ ആരംഭി ക്കുന്ന ശ്രേഷ്ഠ ഭാഷ മലയാളം പഠനകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവ്വ ഹിക്കുകയായിരുന്നു കുമ്മനം രാജശേഖരൻ ശ അ ശ്ര അ ശ്ര അ ശ്ര അ മതത്തിനും ഭാഷക്കും ദേശത്തിനും അതീതമായി മനുഷ്യ മനസ്സി നെ ഒന്നിപ്പിക്കുന്ന മാധ്യമമാണ് സംഗീതമെന്ന് മിസോറാം ഗവർണർ കുമ്മ നം രാജശേഖരൻ പറഞ്ഞു കണ്ണൂർ പയ്യന്നൂരിൽ നടന്നു വരുന്ന തുരീയം സംഗീതോത്സവ വേദിയിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു തിരുവനന്തപുരത്ത് പതിനൊന്നാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്ര മേളയുടെ സമാപന സമ്മേളന ത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്ന അദ്ദേഹം

ഹോസ്റ്റൽ എന്ന എന്ന പേരിൽ ആര്ംഭിക്കുന്ന ഹോട്ടൽ പദ്ധതിയുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ഇന്ന് വൈകീട്ട് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവ്വഹിക്കും രാജ്യത്ത് ആദ്യമാ യാണ് ഗവൺമെന്റ് തലത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി ഹോട്ടൽ സംരംഭം നടപ്പാക്കുന്നതെന്നും ആറ് മാസത്തിനകം പ്രവർത്തനം ആരംഭിക്കുമെന്നും കെ ്ടി ഡി സി ചെയർമാൻ എം

വൈകീട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് സർവീസ് ഉദ്ഘാടനം ചെയ്യും അസുഖബാധിതരായി നാട്ടിലേക്ക് മട ങ്ങുന്ന വിദേശ മലയാളികളെ കേരളത്തിലെ ഏത് വിമാനത്താവളത്തിൽ നിന്നും അവരുടെ വീട്ടിലേക്കോ അവർ ആവശ്യപ്പെടുന്ന ആശുപത്രിയി ലേക്കോ സൌജന്യമായി എത്തിക്കുന്ന പദ്ധതിയാണ് നോർക്ക എമർജൻസി ആംബുലൻസ് സ്ർവീസ് രു ൽ ശു ൾ ശു ൾ ൽ ശു ൽ ശ ഗൾഫ് മേഖലയിൽ സ്ട്രെച്ചറിൽ കൊണ്ടുവരുന്ന രോഗികളുടെ വിമാ നയാത്രാനിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ച എയർ ഇന്ത്യാ തീരുമാനം പിൻവ ലിച്ചതിന് സിവിൽ വ്യോമയാന മ്ന്ത്രി സുരേഷ് പ്രഭുവിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നന്ദി അറിയിച്ചു ഗൾഫ് നാടുകളിലേക്കും തിരിച്ചും ഇക്കണോമി ക്ലാസിൽ യാത്ര ചെയ്യുന്ന മറ്റുള്ളവരുടെ നിരക്ക് വർധനയും ഒഴിവാക്കണ്മെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു

പി രാമകൃഷ്ണൻ നിർദ്ദേശം നൽകി തിരുവനന്തപുരത്ത് മന്ത്രി യുടെ ചേംബറിൽ തൊഴിൽ വകുപ്പിന്റെ പദ്ധതി അവലോകനം ചെയ്യുക യായിരുന്നു അദ്ദേഹം ഡിസംബറ്റ്നകും പദ്ധതികൾ പൂർത്തീകരിക്കാൻ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണമെന്നും മന്ത്രി പറഞ്ഞു രു ൽ ശ്വ ്യ ശ്വ ്യ ശ്ര ്യ ശ്ര ്യ ശ മൂന്നാക്കക്കാരിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് അടുത്ത ഫെബ്രവരിയിൽ കാലാവധി തീരുന്നതിന് മുമ്പ് ഗവൺമെന്റിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്ന്ാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ സംസ്ഥാന കമ്മീഷൻ കൊച്ചിയിൽ അറിയിച്ചു സംസ്ഥാനത്തെ നാലു മേഖലക ളായി തിരിച്ച് കമ്മീഷൻ സിറ്റിംഗ് നടത്തും

തെന്മല കെ

ലേബർ കോളനിയിൽ വിഷ്ണുവിനെയാണ് രാത്രി അറസ്റ്റ് ചെയ്തത്

രു ൽ ശ്വ കണ്ണൂർ അഴീക്കോട്ട് കടന്നൽ കുത്തേറ്റ് തെങ്ങുകയറ്റ തൊഴിലാളി മരി ച്ചു പുതിയാപ്പറമ്പിലെ രാജനാണ് മരിച്ചത്